നിയമസഭ വോയിസ് ആന്തൂരിൽ കൺവെൻഷൻ സെന്ററിന് നഗരസഭ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് പ്രവാസി വ്യവസായി സാജൻ ആത്മഹത്യ ചെയ്ത സംഭവം രണ്ടാം തവണയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസായി സഭയിൽ അവതരിപ്പിക്കുന്നത് നഗരസഭ അധ്യക്ഷ പി

ശ്യാമളയ്ക്ക് എതിരെ ആത്മഹത്യ പ്രേരണാകുറ്റത്തിന് കേസെടുക്കണമെന്ന് അടിയന്തര പ്രമ്മേയ്ക്കിത് അനുമതി തേടിയ കെ

കെട്ടിട നിർമാണത്തിന് അനുമതി കൂകാടുക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമ്മാർുടെ ്അധികാരത്തിൽ കുറവ് വരുത്തുമെന്ന് മുഖ്യമന്ത്രി പ്പി്ണ്റായി വിജയൻ പ്രതിപക്ഷത്തിന് മറുപടി നൽകി കെട്ടിട ്ന്നൂർമാണ പരാതികളിൽ ഒരു മാസത്തിനുള്ളിൽ തീർപ്പ് കൽപിക്കണമെന്നും ബന്ധപ്പെട്ട നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു

കുറ്റക്കാർക്ക് എതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആന്തൂർ നഗരസഭാധ്യക്ഷയെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടിക്രമങ്ങൾ വെട്ടിച്ചുരുക്കി സഭ ഇന്നത്തേയ്ക്ക് പിരിഞ്ഞതായി സ്പീക്കർ അറിയിച്ചു

ബാലൻ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്ക് ഒരു വർഷത്തിനുള്ളിൽ ഭൂമി നൽകുമെന്ന് മന്ത്രി ഏപ്ടക്ക്ബാലൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു